ബാധ സ്ഥിരീകരിച്ചു ജില്ലയിൽപ്രതിരോധ നടപടികൾ ശക്തമാക്കി

അടിസ്ഥാനരഹിതമെന്ന് മുഖ്യ്മിട്ടത് പിണറായി വിജയൻ ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം

സ്റ്റേഷനുകളും ട്രെയ്യിൻ വിമാന സർവീസുകളും നിയന്ത്രിച്ച് വനിതക്ടുൾ ആറ്റുകാൽ പൊങ്കാല നാളെ

അവസാനഘട്ടത്തിൽ

ഇന്ത്യയ്ക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് ബാറ്റിംഗ്

രണ്ട് ജില്ലയിൽ ശക്തമായ പ്രതിരോധ നടപടികൾ ആരംഭിച്ചതായി ആരോഗൃമന്ത്രി കെ

ആലപ്പുഴയിൽ കിഫ്ബി പദ്ധതികളുട്ടെ് അവലോകന ബോധവത്ക്കരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി

തലമുറകളുടെ സമത്പം സ്ത്രീകളുടെ അവകാശങ്ങളുടെ സാക്ഷാത്കാരം എന്നതാണ് ഇത്തവണത്തെ സന്ദേശം വനിതാദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് നാരീശക്തി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു

വനിതാദിനത്തിൽ വിവിധ മേഖലകളിൽ പ്രാവിണൃം തെളിയിച്ച വനിതകൾ തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ടിറ്റർ അക്കൌണ്ടിലൂടെ ഇന്ത്യയുടെ പങ്കുവയ്ക്കുകയാണ്

വനിതാ ദിനം ഇൻട്രോ സ്വന്തം തൊഴിലിടങ്ങളിലെ സൌകര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുത്താനായി സ്ത്രീകൾ നടത്തിയ മുന്നേറ്റത്തിന്റെയും സമരങ്ങളുടെയും ചരിത്രമുണ്ട് ലോക വനിതാദിനത്തിന്

വിവിധ ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിൽ എസ് എച്ച്

എൽ എ മാർ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ എന്നിവർ കൊച്ചിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു

ഐ എം ചവറ ഏരിയാ കമ്മിറ്റി ഓഫീസ് എം എൽ എ ഓഫീസ് ചവറ പഞ്ചായത്ത് എന്നിവടങ്ങളിൽ ഇന്ന് ഭൌതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും

വോട്ടർപട്ടിക പുതുക്കുന്നതിനുള്ള നടപടി പുനരാരംഭിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വി

കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി മോഹൻ

ഉച്ചക്ക് പൊങ്കാല ചടങ്ങുകൾ പൂർത്തിയായാലുടൻ മടങ്ങിപ്പോകാനാകും വിധമാണ് കെ എസ് ആർ ടി

ദക്ഷിണ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷൻ ഇന്നും നാളെയും പ്രത്യേക പ്രെയിൻ സർവ്വീസുകൾ നടത്തും

പൊങ്കാലയോടനുബന്ധിച്ച് ്തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മുതൽ തിങ്കളാഴ്ച രാത്രി എട്ട് വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും ന്യൂസ് ഡസ്ക് ആകാശവാണി

ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മാസങ്ങൾക്ക് മുമ്പേ ഒരുക്കങ്ങൾ ആരംഭിച്ചതിനാൽ പൊങ്കാല നിർത്തി വയ്ക്കേണ്ടതില്ലെന്നാണ് തീരുമാനം

രോഗ ബാധിത രാജ്യങ്ങളിൽ നിന്നും എത്തിയവർ വീട്ടിൽ തന്നെ പൊങ്കാലയി നിർദേശം നൽകിയിട്ടുണ്ട്

ആവശ്യമെങ്കിൽ സമ്പർക്കത്തിലുള്ള ആളുകളെ കണ്ടെത്താൻ ഇത് ഉപകാരപ്പെടുമെന്നും മന്ത്രി അറിയിച്ചു

വിപുലമ്മായ സജ്ജീകരണങ്ങളാണ് തൊഴൽ ആയിരക്കണക്കിന് ഭക്തരെ്പൂർവേൽക്കാൻ ദേവസ്വം ബോർഡ് ഒരുക്കിയിരിക്കുന്നത്

സ്ത്രീകൾക്ക് പടിഞ്ഞാറേ ഗോപുരം വഴി ദർശനത്തിന് ക്രമീകരണം സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്

ടോസ് നേടിയ ഓസ്ട്രേലിയ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു മെൽബൺ ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് മത്സരം ഗ്രൂപ്പിലെ എല്ലാ മത്സരങ്ങളിലും ജയിച്ച ആത്മവിശ്വാസത്തോടെയാണ് ഇന്ത്യൻ വനിതകൾ നിലവിലെ ചാമ്പൃന്മാരായ ഓസ്ട്രേലിയയെ നേരിടുന്നത് ലോകകപ്പിന്റെ ഏഴാംപതിപ്പിൽ ഓസ്ട്രേലിയയുടെ തുടർച്ചയായ ആറാമത്തെ ഫൈനൽ പോരാട്ടവും എന്നാൽ വനിതാ ലോകകപ്പിൽ ഇന്ത്യയുടെ കന്നി ഫൈനൽ മത്സരവുമാണിത്

നശിപ്പിക്കപ്പെടുന്ന പക്ഷികളുടെ ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് ഗവൺമെന്റ് ഉറപ്പു നൽകി റെയിൽവെ കൊല്ലം ചീരങ്കാവിൽ റെയിൽവേ പാളത്തിൽ തടസം സൃഷ്ടിച്ചു വലിയ തടിക്കഷണങ്ങൾ കണ്ടെത്തി

അട്ടിമറി ശ്രമമന്ന സംശയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു സ്പോർട്സ് കേരള മാരത്തൺ എല്ലാവർക്കും ആരോഗ്യം എല്ലാവർക്കും സ്പോർട്സ് എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന കായിക യുവജനകാര്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്പോർട്സ് കേരള മാരത്തൺ കോഴിക്കോട് ബീച്ചിൽ സമാപിച്ചു

ഹയർ സെക്കണ്ടറി സ്ക്കൂളിൽ സമ്പൂർണ്ണ സൌരോർജ്ജ പദ്ധതിക്ക് തുടക്കമായി പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം മന്ത്രി ജെ

ടി എ യും മാനേജ്മെൻറും സംയുക്തമായാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്

സി ഈ വർഷത്തെ എസ്

എച്ച്

എച്ച്

സി പരീക്ഷ മറ്റന്നാൾ ആരംഭിക്കും

മലപ്പുറം ഷിദ്യാഭ്യാസ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പേർ പരീക്ഷ എച്ചുത്ത്

എച്ച്

മൂല്യനിർണ്ണയം ഏപ്രിൽ രണ്ട് മുതൽ ആരംഭിക്കും രണ്ട്ഘട്ടങ്ങളിലായാണ് മൂല്യനിർണയം പൂർത്തിയാക്കുക

സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിലും ലിംഗ സമത്വം ഉറപ്പാക്കുന്നതിലും അന്താരാഷ്ട്ര വനിതാദിന അവസരം ഒരുക്കുമെന്ന് വനിതാദിന സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു പുരുഷന്മാർക്കൊപ്പം സ്ത്രീകൾക്ക് തുലൃ അവസരം നൽകുന്നതിനാണ് പ്രാധാനൃം കൊടുക്കുന്നത്